നേരത്തെ രണ്ടേക്കറിൽ താഴെ കൃഷിഭൂമിയുള്ളവർക്കായി ധന സ ഹായം പ്രഖ്യാ പിച്ചിരുന്നത്

പ്രധാനമന്ത്രി കിസാൻ പെൻഷൻ യോജന എന്ന പേരിൽ കർഷകർക്ക് പുതിയ പെൻഷൻ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി

ഇതിനു പുറമെ അഞ്ചു കോടി ചെറുകിട കച്ചവടക്കാർക്കും പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് സൈനിക സേവനത്തിനിടെ മരിക്കുന്നവരുടെ മക്കൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് ആനുകൂല്യം നക്സൽ മാവോ യിസ്റ്റ് ഭീകരാക്രമണങ്ങളിൽ മരിക്കുന്ന സംസ്ഥാന പൊലീസ് സേനാംഗങ്ങളുടെ മക്കൾക്കും നൽകാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്

ഇന്നലെ ചേർന്ന ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് തീയതി തീരുമാനിച്ചത്

മനേകാഗാന്ധിയാണ് പ്രോട്ടം സ്പീക്കർ

പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാടും യോഗം ചർച്ച ചെയ്യും

പിമാരും പങ്കെടുക്കുമെന്ന് പാർട്ടികേന്ദ്രങ്ങൾ ഡൽഹി യിൽ അറിയിച്ചു

വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണയ്ക്ക് നന്ദിയ റിയിക്കാനാണ് രാഹുൽഗാന്ധി എത്തുന്നതെന്ന് പാർട്ടി കേന്ദ്ര ങ്ങൾ അറിയിച്ചു

രാജ്യത്തിന്റെ വികസനത്തിനുവേണ്ടി കേന്ദ്രവും സംസ്ഥാനങ്ങളും സഹ കരിച്ച് മുന്നോട്ടു നീങ്ങണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു കേന്ദ്രസഹമന്ത്രിയായി സ്ഥാനമേറ്റ വി മുരളീധരനെയും അദ്ദേഹം അഭിനന്ദിച്ചു പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കേ ണ്ടിയിരുന്നതിനാൽ പിണറായി വിജയൻ പ്രധാനമന്ത്രിയുടെ സത്യ പ്ര തിജ്ഞാ ചട ങ്ങിൽ പങ്കെടുത്തിരുന്നില്ല

തോമസ് ഐസക് നിർദ്ദേശിച്ചു ഗവൺമെന്റ് പദ്ധതികളുമായും വകുപ്പുകളുമായും ചേർന്ന് ഹരിതകേരളം പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യ പ്പെട്ടു തിരുവനന്തപുരത്ത് ജലസംഗമം പ്ലീനറിസെഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മൂന്ന് ദിവസത്തെ ജലസംഗമം വൈകീട്ട് സമാപിച്ചു കൃഷിക്ക് കൃത്യമായ ജലസേചനം ഉറപ്പാക്കാൻ പഞ്ചാ യത്തുതലം മുതൽ ആസൂത്രണം വേണമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഭിപ്രായ പ്പെട്ടു

ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ഇന്നലെയാരംഭിച്ച സംസ്ഥാന കമ്മറ്റി പരിഗണിച്ചു റിപ്പോർട്ടിലെ ചർച്ച ഇന്ന് തുടരും വിശ്വാ സികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പാർട്ടിയ്ക്കെതിരെ പ്രചാരണമുണ്ടായെന്നും ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരി ക്കപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്

എൽനിനോ പ്രതിഭാസം മൂലം ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴയുടെ അളവ് കുറഞ്ഞേ ക്കാം ഓഗസ്റ്റിൽ സാധാരണഗതിയിൽ മഴയുണ്ടാകും

ക്ഷീരോത്പാദന സ്വയം പര്യാപ്തത കൈവരിക്കാൻ കർമ്മപരിപാടികൾക്ക് രൂപം നൽകുന്നതിന് സംസ്ഥാനതല ശിൽപശാല സംഘടിപ്പിച്ചിട്ടുണ്ട്

കേസിൽ ജോർജ് പ്രതിയല്ലെന്നും സാക്ഷി മാത്ര മാണെന്നും സംസ്ഥാന പൊലീസ് മേധാവി ഗവൺമെന്റിനെ അറിയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് അച്ചടക്ക നടപടി അവസാനിപ്പിച്ചത്

ടോസ് നേടിയ വെസ്റ്റിൻഡീസ് പാക്കിസ്ഥാനെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു

സംസ്ഥാന ജൂനിയർ ബാസ്ക്കറ്റ് ബോളിൽ ആൺകുട്ടി കളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ കോട്ടയം ഫൈനലിലെത്തി ഇടുക്കി മുട്ടത്ത് ഇന്നലെ ആൺകുട്ടികൾ സെമിയിൽ തിരുവനന്തപുരത്തെയും പെൺകുട്ടികൾ കണ്ണൂ രിനെയുമാണ് തോൽപ്പിച്ചത്

ഇന്നലെ ഡി ആർ ഐ ഓഫീസിലെത്തി കീഴടങ്ങിയ ബിജു വിനെ ചോദ്യം ചെയ്യലിനുശേഷമാണ് അറസ്റ്റ് ചെയ്തത് ഇയാളെ പിന്നീട് റിമാന്റ് ചെയ്തു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് ഡി ആർ ഐ ഇന്ന് അപേക്ഷ നൽകും

മന്ത്രി കെ കെ ശൈലജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായിരിക്കും

എടവനക്കാട് സ്വദേശികളായ അനുജിത്ത് പ്രജിത്ത് എന്നിവരാണ് മരിച്ചത്

ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു അപകടം

നാല് പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു

രാവിലെ അണക്കെട്ട് സന്ദർശിച്ച ശേഷം കുമളി ഓഫീസിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും

നാടിന്റെ വിവിധ ദേശങ്ങളിൽനിന്ന് പൊയ്ക്കുതിരകളുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ഇന്നലെ രാവിലെ മുതൽ കളിയാട്ടക്കാവിലെത്തിയത്

മലപ്പുറം സ്വലാത്ത് നഗറിൽ പ്രാർത്ഥനാ സമ്മേളന സമാപനം ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു കാന്തപുരം

രാഘവൻ എം

കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ മക്കൾക്ക് ഇന്ന് പഠ നോ പകരണങ്ങൾ വിതരണം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നതവി ജയം നേടിയവരെ എൻ എം ആർ ഹാളിൽ സംഘടിപ്പി ക്കുന്ന ചടങ്ങിൽ അനുമോദിക്കും കാഴ് ചയില്ലാത്ത വരുടെ കുട്ടികൾക്ക് നാളെ കോഴിക്കോട് കുണ്ടായിത്തോട് വി ടി സി കേന്ദ്രത്തിൽ കെ എഫ് ബി താലൂക്ക് കമ്മിറ്റി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും